പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിൽ ഐ

ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നു

ദീപാവലി വേളയിൽ ്വീടുകളും ക്ഷേത്രങ്ങളും പൊതുസ്ഥലങ്ങളും ദീപാലംകൃതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിൽ ഐ ടി ബി

കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ് രാജ്യത്തെ ഒറ്റപ്പെട്ടു കിടക്കുന്ന മഞ്ഞുമലകൾക്കിടയിൽ ത്വാഗപൂർവ്വമായി സേവനമനുഷ്ഠിക്കുന്ന ജവാൻമാർ രാജ്യത്ത് കരുത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

സമാധാന സേനയിലെ ഇന്ത്യൻ ജവാൻമാർ ലോകത്തിന്റെ പ്രശംസക്ക് പാത്രമാകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തെ ജനങ്ങൾക്ക് ദീപാവലി ആശംസ നേർന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നെതന്യാഹുവിന് ശ്രീ നരേന്ദ്രമോദി നന്ദി പറഞ്ഞു ന്യൂസ്ഡെസ്ക് ആകാശവാണി

വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി ന്രേന്ദ്രമോദി എന്നിവർ ദീപാവലി ആശംസകൾ നേർന്നു രാജ്യത്തെ ജനങ്ങളുടെ സാഹോദര്യ ബോധവും ഐക്യവും ഉൌട്ടി ഉറപ്പിക്കുന്നതാകണം ദീപാവലി ആഘോഷമെന്ന് രാഷ്ട്രപതി പറഞ്ഞു

രാജ്യത്തെ ജനങ്ങളിൽ സന്തോഷവും ആരോഗ്യവും ഐശ്വര്യവും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം ദീപാവലി ദിനം നന്മയുടെ വെളിച്ചും പ്രകാശിക്കുന്നതാകട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു

ഇന്ന് വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെയാണ് മുഹൂർത്ത വ്യാപാരം

തുറമുഖ വികസനത്തിൽ ഇന്ത്യ നടത്തിവരുന്ന പ്രവർത്തന മികവ് പരിശോധിച്ച ശേഷമാണ് അമേരിക്കയുടെ ഈ നടപടി ഇന്ത്യ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങൾക്ക് താൽക്കാലികമായി പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നും അമേരിക്ക നിർദ്ദേശം നൽകി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇറാനിൽ കടുത്ത ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നത്

എസ്

ആദ്യ സൂചനകളനുസരിച്ച് സെനറ്റിൽ പ്രസിഡന്റ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ജനപ്രതിനിധി സഭയായ കോൺഗ്രസ്സിൽ ഡമോക്രാറ്റിക് പാർട്ടിയും മുന്നിലാണ്

നിലവിൽ ഇരു സഭകളിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷം

സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് സൂചന ഉച്ചയ്ക്കു ശേഷം ഫലം പൂർണ്ണമായി അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ബന്ധു കരുണാ ശുക്ല കോൺഗ്രസ് നേതാവ് മഹീന്ദ്ര കർണയുടെ ഭാര്യ ദേവീ കർണ എന്നിവരും ആദ്യഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്

ദീപാവലി അവധി പ്രമാണിച്ച് ഇന്ന് പത്രികാ സമർപ്പണം ഉണ്ടാവില്ല

ശബരിമലയിൽ ആചാരലംഘനം ഉണ്ടായി എന്ന പരാതി അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചു ചെയ്യും

താൻ ആചാര ലംഘനങ്ങൾ നടത്തിയിട്ടില്ലെന്നും ചടങ്ങിൽ പങ്കെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ശങ്കര ദാസ് വൃക്തമാക്കി ദേവസം ബോർഡ് ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്ത്മാക്കിയത്

കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ താലിബാൻ പോരാളികളെ മേഖലയിൽ നിന്ന് തുരത്താൻ കഴിഞ്ഞതായി പ്രവിശ്യാ കൌൺസിൽ അംഗം ദാദുള്ള ഖനി അറിയിച്ചു

വാരാണസി റിംഗ് റോഡിന്റെ ഒന്നാം ഘട്ടവും ബാബത് പുട്ട് വാരാണസി റോഡുമാണ്

ഭാരത് മാല പദ്ധതിയിൻ കീഴിൽ ദേശീയ പാതാ അതോറിറ്റിയാണ് രണ്ട് റോഡുകളും നിർമ്മിച്ചത്

എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന സിനിമാ സംഘടനകളുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു ഹർജിയിൽ മറുപടി നൽകാൻ സംസ്ഥാന ഗവൺമെന്റിനോടും സിനിമാ സംഘടനകളോടും കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന നടിമാരായ റീമാ കല്ലിംഗലും പത്മ പ്രിയയുമാണ് ഹർജി നൽകിയത്

കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന പ്രാഥമിക യോഗത്തിലാണ് ഉന്നതതല ചർച്ചയ്ക്കുള്ള തീരുമാനമെടുത്തത്

എസ് പ്രതിരോധ സെക്രട്ടറി ജിം മാറ്റിസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോ എന്നിവർ വാഷിംഗ്ടണിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കും പൈനയ്ക്കു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിദേശ കാര്യ വിഭാഗം മേധാവി യാങ് ചി ജനറൽ വീ ഫെംഗ്യെ എന്നിവർ ചർച്ചകളിൽ സംബന്ധിക്കും

ടി സേവനം വിനോദ സഞ്ചാരം എന്നീ മേഖലകളിൽ കൂടുതൽ വിപണി സൌകര്യം ലഭ്യമാക്കണമെന്ന് ഇന്ത്യ ചൈനയോട് ആവശ്യപ്പെട്ടു അയൽരാജ്യവുമായി നിലനിൽക്കുന്ന വാണിജ്യ കമ്മി പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് വാണിജ്യമന്ത്രാലയം അറിയിച്ചു ചൈനയുമായുള്ള ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്താനാണ് ഏതാനും സുപ്രധാന മേഖലകൾ തെരഞ്ഞെടുത്തതെന്ന് വാണിജ്യ സെക്രട്ടറി അനൂപ് വാധ്വാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു

മൽസ്യത്തൊഴിലാളികൾ ഈ ഭാഗങ്ങളിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് പോയവർ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം ന്യൂനമർദത്തിന്റെ ഫലമായി ഇന്നും നാളെയും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിപ്പ് നൽകിയിട്ടുണ്ട്

ജനുവരിയോടെ കേന്ദ്ര സഹായം കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

വരൾച്ച സ്ഥിതി വിലയിരുത്തി കേന്ദ്രത്തിന് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത സംഘം ഇന്ന് ഡൽഹിയ്ക്ക് മടങ്ങും